ഓറഞ്ച് അലർട്ട് പുറപ്പെടുവി

വർക്ക് വധശിക്ഷ വൃവസ്ഥ ചെയ്യുന്ന ബിൽ ലോക്സഭ പാസ്സാക്കി

ഇയിൽ പൊതുമാപ്പ് ലഭിക്കുന്ന മലയാളികളെ സുരക്ഷിതമായി നാട്ടിലെത്തി ക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി എസ് ശ്രീധരൻപിള്ള ബി

പി സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന ഹജ്ജ് ക്യാംപിന് ഇന്ന് തുടക്കം ആദ്യസംഘം നാളെ പുറപ്പെടും സംസ്ഥാനത്ത് വർഷകാല ട്രോളിങ് നിരോധനം ഇന്ന് അർധരാത്രി അവസാനിക്കും

എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ തുടർച്ചയായി കനത്തമഴ ലഭിച്ചാൽ മാത്രമേ ഡാം തുറ ക്കു ഡാമിലെ ജലനിരപ്പ് സസൂക്ഷ്മം നിരീക്ഷിച്ച് വരികയാണെന്ന് സംസ്ഥാന വൈദ്യു തിബോർഡ് അറിയിച്ചു മഴയുടെ തോതും ഡാമിലേക്ക് നീരൊഴുക്കും വിലയിരുത്തിയ ശേഷമേ റെഡ് അലർട് പുറപ്പെടുവിക്കൂയെന്നും ബോർഡ് വ്യക്തമാക്കി തുടർന്ന് നിശ്ചിത സമയത്തിന് ശേഷം ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി അധികജലം പുറത്തേക്കൊഴുക്കിവിടും ഡാമിന്റെ താഴെ കഴിയുന്നവരും ചെറുതോണി പെരിയാർ കരയിലുള്ളവർ അതീജ ജാഗ്രത പുലർത്തണമെന്നും നിർദേശിച്ചിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് നൽകിയതിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തിരുവനന്തപുരത്ത് അറിയിച്ചു റെഡ്അലർട്ട് പുറപ്പെടുവിച്ച ശേഷം ജനങ്ങൾക്ക് വൃക്തമായ വിവരങ്ങൾ നൽകി മാത്രമേ ഷട്ടർ തുറക്കുന്ന നടപ ടികളിലേക്ക് കടക്കുകയുള്ളൂ പകൽസമയത്തായിരിക്കും ഷട്ടർ തുറക്കുകയെന്നും ദുരന്തനിവാരണ അതോറിറ്റി അറിയിച്ചു ഇടുക്കി ഡാം തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ച് പഞ്ചായത്ത് തലത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടത്തിയ സർവെയുടെ റിപ്പോർട്ട് കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ അവലോകനം ചെയ്തു

ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഡാം ട്രയൽ റൺ നടത്തുന്ന ദിവസവും സമയവും ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും കലക്ടർ പറഞ്ഞു

ഇടുക്കിയിൽ മാത്രമല്ല എറണാകുളം ജില്ലയിലും ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് ഡാം തുറക്കുന്ന സമയത്ത് നദിയിലെ ചപ്പാത്തുകളിലൂടെ ഗതാഗതം നിരോധിക്കും

എമ്മുകളിൽ നിന്നും ബാങ്കുകൾ പണം എടുത്തുമാറ്റിയെന്ന കാര്യം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് ഇത് തെറ്റിദ്ധാരണമൂലം സംഭവിച്ചതാകാമെന്നും തിരിച്ച് പണമിടുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു ഇടുക്കി ഇടമലയാർ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ജന ങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് എറണാകുളം ജില്ലയിലെ ജനപ്രതിനിധികൾ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെ ആശങ്കാജനകമായ വാർത്തകൾ പ്രചരിപ്പിച്ച് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നവർക്കെതിരെ ഐ ടി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരി ക്കണമെന്ന് കൊച്ചി കലക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ ആവശ്യ പ്പെട്ടു ഏതു സാഹചര്യവും നേരിടാൻ എറണാകുളം ജില്ലാ ഭരണകുടം സുസജ്ജമാ ണെന്ന് ജില്ലാകലക്ടർ മുഹമ്മദ് വൈ സഫീറുല്ല പറഞ്ഞു പത്തനംതിട്ട ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ സംഭരണികളിലെ ജലനിരപ്പ് പൂർണ ശേഷിയോട് അടുക്കുന്നു

ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി മൂഴിയാർ പവർ ഹൌസിലെ നാല് ജനറേറ്ററുകളും പൂർണതോതിൽ വൈദ്യുതി ഉൽപാദനം നടത്തുകയാണ്

പെൺകുട്ടികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താനാണ് കർശന നിയമം കൊണ്ടുവന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജ്ജു അറിയിച്ചു

ഇയിൽ പൊതുമാപ്പ് ലഭിക്കുന്ന മലയാളികളെ സുരക്ഷിതമായി നാട്ടിലെത്തി ക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണ്റായി വിജയൻ അറി യിച്ചു നോർക്കാറൂട്ട്സ് ഇതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം തിരുവന ന്തപുരത്ത് പറഞ്ഞു

അടുത്തമാസം മധ്യ ത്തോടെ ആദ്യസംഘം നാട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറ ഞ്ഞു

എസ് ശ്രീധരൻപിള്ളയെ ബി

പി സംസ്ഥാന പ്രസിഡന്റായി പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിതാഷാ നിയമിച്ചു

മുരളീധരൻ എം പിക്ക് ആന്ധ്രാപ്രദേശിന്റെ അധികചുമതലയും നൽകി

കുമ്മനം രാജശേഖരനെ മിസോറാം ഗവർണറായി നിയമിച്ചതിനെ തുടർന്നാണ് ബി

പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവു വന്നത് പാർട്ടിക്ക് തന്നിൽ വിശ്വാസം കാരണമാണ് വീണ്ടും അധ്യക്ഷനായി നിയമിച്ചതെന്ന് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു രണ്ടാംവട്ടവും അധ്യക്ഷനായതിൽ സന്തോഷമു ണ്ടെന്ന് അദ്ദേഹം നെടുമ്പാശേരിയിൽ പറഞ്ഞു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജിനു പോകുന്നവർക്കായി ഹജ്ജ് ക്യാംപ് നെടുമ്പാശേരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകീട്ട് ഉദ്ഘാ ടനം ചെയ്യും

ടിജലീൽ ഫ്ളാഗ് ഓഫ് ചെയ്യും ഇന്ന് രാവിലെ തീർത്ഥാടകർ എത്തിത്തുടങ്ങും

തീർത്ഥാ ടകരെ യാത്രയാക്കാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും എത്തുന്നവർക്ക് ഹജ്ജ് ക്യാംപിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയുർ മുഹമ്മദ് കുഞ്ഞി മൌലവി പറഞ്ഞു

ബോട്ടുകളിൽ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ ജീവൻരക്ഷാഉപകരണങ്ങൾ കരുതണമെന്നും തൊഴിലാളികൾ തിരിച്ചറിയൽ രേഖകൾ സൂക്ഷിക്കണമെന്നും ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് കൂടി കനത്തമഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീ ക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ശക്തമായ കാറ്റിനും കട്ടൽക്ഷോഭത്തിനും സാധ്യത യുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുതെന്നും നിർദേശിച്ചിട്ടുണ്ട് നാളെ മുതൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കണ്ണൂരിലെ തീരപ്രദേശങ്ങളിൽ ഇന്നലെ ശക്തമായ കടലാക്രമണമുണ്ടായി തലശേരി പൊട്ടിപ്പാലം കണ്ണൂർതയ്യിൽ അഴീക്കൽ മാട്ടൂൽ എന്നിവിടങ്ങളിലാണ് രൂക്ഷമായ കടലേറ്റ മുണ്ടായത് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി

സുധാകരൻ ആലപ്പുഴയിൽ പറഞ്ഞു വീടുകൾ പൂർണ മായും ശുചിയായെന്നുറപ്പാകാതെ ദുരിതാശ്വാസ ക്യാംപുകൾ വിടരുതെന്നും അദ്ദേഹം പറ ഞ്ഞു കൊല്ലം ജില്ലയിൽ കാലവർഷം ശക്തിപ്രാപിച്ചു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ് തീരദേശമേഖലയിൽ കടലാക്രമണം രൂക്ഷമായി കൊല്ലം പരവൂർ തീരദേശ പാതയിൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി

വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന ആലപ്പുഴ കോട്ടയം ജില്ലക്കാർക്ക് അവശ്യസാധ നങ്ങൾ സമാഹരിക്കുന്ന പ്രവർത്തനം വെള്ളിയാഴ്ച വരെ തുടരുമെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ യു

സഹായപ്രവാഹം തുടരുന്ന സാഹചര്യത്തി ലാണ് പ്രവർത്തനം ദീർഘിപ്പിച്ചത് ഒമ്പത് ലോറി അവശ്യസാധനങ്ങൾ ഇതിനകം ര ണ്ടു ജില്ലകളിലേക്കുമായി അയച്ചതായി കലക്ടർ കോഴിക്കോട്ട് പറഞ്ഞു

ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ യോഗം അംഗീ കരിച്ചു ലൈഫ് ആർദ്രം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഹരിതകേരളം എന്നീ മിഷനുകളാണ് യോഗം ചേർന്നത്

സംസ്ഥാന ടൂറിസം വകൂപ്പ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു

നവംബർ ഒന്നിന് കൊല്ലത്ത് പ്രസി ഡൻസ് ട്രോഫിയോടെ സമാപിക്കും ബാലസാഹിത്യകാരൻ എം എസ് കുമാർ പാലക്കാട് ഞാങ്ങാട്ടിരിയിൽ നിര്യാതനാ യി

സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ഞാങ്ങാട്ടിരിയിൽ നടക്കും

എലപ്പുള്ളി എടുപ്പ കളം കൃഷ്ണദാസാണ് മരിച്ചത് നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിൽ കുറുവംപുഴയുടെ വെണ്ണക്കോട് കെട്ടുങ്ങൽ കടവിൽ പാറക്കെട്ടിൽ നിന്ന് കാൽവഴുതി പുഴയിൽ വീണ് യുവാവ് മരിച്ചു നല്ലംത ണ്ണിവളവിൽ രബീഷാണ് മരിച്ചത് കണ്ണൂർ ആസ്ഥാനമായ ടെറിട്ടോറിയൽ ആർമിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന തരത്തിലുള്ള പ്രചാരണം വ്യാജമാണെന്ന് ടെറിട്ടോറിയൽ ആർമി അധികൃതർ അറിയി ച്ചു നാളെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന തരത്തിൽ വാട്സ്ആപ്പിലൂടെ ചിലർ നട ത്തിയ വ്യാജപ്രചാരണം കാരണം ഇന്നലെ മുതൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപെടെ ഉള്ളവർ കണ്ണൂരിൽ എത്തിയിരുന്നു ട നൈപുണ്യവികസനം വൊക്കേഷണൽ പരിശീലനം എന്നിവയിലെ മികവിന് നെഹ്റു ടാഗോർ ദേശീയസാക്ഷരതാ പുരസ്കാരം മലപ്പുറം ജൻശിക്ഷൺ സൻസ്ഥാന് ലഭിച്ചു ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ജെ

എസ് മലപ്പുറം ജില്ലാ ചെയർമാൻ പി

പി ഉപരാഷ്ട്രപതി എം